സംസ്ഥാനത്ത് വീണ്ടും നിപ രോഗ ബാധ സ്ഥിരീകരിച്ചു ഏതു സാഹചര്യവും നേരിടാൻ സംസ്ഥാനം സജ്ജമാണെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി കെ

ഉത്തർപ്രദേശിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ബി

നിതിൻ ഗഡ്കരി കേന്ദ്ര ചെറുകിട സൂക്ഷ്മ വൃവസായ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്തു

അനധികൃത പണമിടപാട് കേസിൽ റോബർട്ട് വാദ്ര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുമ്പാകെ ഹാജരായി

വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് രോഗിയെ പരിചരിച്ച നഴ്സുമാരിൽ രണ്ടു പേർക്കും അടുത്തിടപഴകിയ രണ്ടു പേർക്കും അടക്കം നാല് പേർക്ക് പനി ബാധിച്ചിട്ടുണ്ട് എന്നാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ല്

കോഴിക്കോട് മുൻ കലകൂർ യു വി ജോസ് പ്രത്യേക സംഘത്തിനൊപ്പം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും മന്ത്രി എറണാകുളത്ത് പറഞ്ഞു

നിപയുമായി ബന്ധപ്പെട്ട് അടിയന്തര യോഗം ചേർന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർധൻ അറിയിച്ചു വിശദവിവരങ്ങളുമായി പ്രിയ നിപ ബാധയോടനുബന്ധിച്ച് ഗവൺമെന്റ് സ്വീകരിക്കുന്ന എല്ലാ നടപടികളോടും പ്രതിപക്ഷം സഹകരിക്കുമെന്നും എല്ലാ പിന്തുണയും നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൊച്ചിയിൽ പറഞ്ഞു ഇതിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നേരിടണമെന്നും പ്രശ്നം നിസ്സാരവത്കരിക്കാതെ വേണ്ട ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യമന്ത്രി കെ

ശൈലജയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കുശേഷം അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു

നിപ വൈറസിനെപ്പറ്റി വ്യാജ പ്രചാരണങ്ങൾ നടത്താതിരിക്കുക എന്താണ് രോഗമെന്നും അതിന് സ്വീകരിക്കേണ്ടി മുൻകരുതലുകൾ എന്തെന്നും എല്ലാവർക്കും അവബോധം ഉണ്ടാക്കണ്ം

പൊതുവേ മൃഗങ്ങളിൽ നിന്നും മൃഗങ്ങളിലേക്ക് പകരുന്ന അസുഖമാണ് നിപ വൈറസ് വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നോ പന്നികളിൽ നിന്നോ ഇത് മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുമുണ്ട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പകരാം അസുഖ ബാധയുള്ളവരെ അടുത്ത് പരിചരിക്കുന്നവരിലേക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ രോഗം പകരാം വൈറസ് ബാധയുള്ള വവ്വാലുകളുടെ കാഷ്ഠം കലർന്ന പാനീയങ്ങളും വവ്വാൽ കടിച്ച പഴങ്ങളും മറ്റും കഴിക്കുന്നതിലൂടെയും രോഗം പകരാം

പനിയും തലവേദനയും തലകറക്കവും ബോധക്ഷയവുമൊക്കെയാണ് ലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങൾ ആരംഭിച്ച ഒന്നു രണ്ടു ദിവസങ്ങൾക്കകം തന്നെ ബോധക്ഷയം വന്ന് കോമ അവസ്ഥയിലെത്താൻ സാധ്യതയുണ്ട് അസുഖം വന്നതിനു ശേഷമുള്ള ചികിത്സയേക്കാൾ ഫലപ്രദം പ്രതിരോധമാണ് വവ്വാലുകൾ ധാരാളമുളള സ്ഥലങ്ങളിൽ നിന്നും തുറന്ന കലങ്ങളിൽ ശേഖരിക്കുന്ന കള്ള് ഒഴിവാക്കുക വവ്വാലൂകൾ കടിച്ച ചാമ്പങ്ങ പേരയ്ക്ക മാങ്ങ പോലുള്ള കായ് ഫലങ്ങൾ ഒഴിവാക്കുക രോഗിയുമായി സമ്പർക്കം ഉണ്ടായതിന് ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക രോഗമുണ്ടെന്ന് സംശയിക്കുന്ന ആളുകളോട് സംസാരിക്കുമ്പോഴും പരിശോധിക്കുമ്പോഴും മറ്റു ഇടപഴകലുകൾ നടത്തുമ്പോഴും കയ്യുറകളും മാസ്കും ധരിക്കുക മാസ്ക് കൈയുറ ഗൌൺ എന്നിവയൊക്കെ രോഗിയുമായി ഇടപഴകുമ്പോൾ ഉടനീളം ഉപയോഗിക്കേണ്ടതാണ് ഇവ ഉപയോഗിച്ച ശേഷം അഴിക്കുമ്പോൾ വളരെയധികം ജാഗ്രതയും സുരക്ഷിതത്വവും പാലിക്കേണ്ടതാണ്

പി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി എസ് പി ഒറ്റക്ക് മത്സരിക്കുമെന്ന് ബി എസ് പി നേതാവ് മായാവതി പറഞ്ഞു സമാജ് വാദി പാർട്ടിയുമായുളള സഖ്യം വേണ്ടെന്ന് വയ്ക്കുന്നത് താൽക്കാലികമായാണെന്നുംഭാവിയിൽ ഈ സഖ്യം തുടരാനുളള സാധൃതകൾ സജീവമാണെന്നും ന്യൂഡൽഹിയിൽ വാർത്താ ലേഖകരോട് സംസാരിക്കവേ മായാവതി വ്യക്തമാക്കി തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പാർട്ടിയുടെ അടിത്തറയും പ്രവർത്തന മികവും മെച്ചപ്പെടുത്തണമെന്ന് മായാവതി ഇന്നലെ പ്രവർത്തകരോട് ആഹാനം ചെയ്തിരുന്നു

കേന്ദ്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ വ്യവസായവകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തശേഷം സംസാരിക്കുകയായിരുന്നു ശ്രീ ഗഡ്കരി അതിനിടെ ശ്രീ പ്രതാപചന്ദ്ര സാരംഗി മന്ത്രാലയത്തിൽ സഹമന്ത്രിയായി ചുമതലയേറ്റു

അരിയുല്പാദനം എക്കാലത്തെയും ഉയർന്ന നിരക്കിലേക്ക് വർദ്ധിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്

കരസേനയും വിവിധ ഗവൺമെന്റ് സിവിൽ ഏജൻസികളുമായി സഹകരിച്ച് വടക്ക് കിഴക്കൻ മേഖലയിലാണ് തിരച്ചിൽ നടത്തുന്നത്

ജനങ്ങളുടെ പ്രതികരണം ലഭിക്കുന്നതിനായി ലഭ്യമാക്കിയ കരട് നിർദ്ദേശത്തിൽ ചില പിഴവുകൾ കടന്നുകൂടിയതുകൊണ്ടാണ് തിരുത്തൽ വരുത്തിയതെന്ന് സമിതി അറിയിച്ചു

അടിസ്ഥാനഘട്ടം മുതൽ മൂന്ന് ഭാഷകൾ പഠിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ത്രിഭാഷ പാഠൃപദ്ധതിയാണ് സമിതി നിർദ്ദേശിക്കുന്നത്

വിവിധ ചാർജ്ജുകൾ നിർത്തലാക്കുക ആർ ടി ജി എസ് എൻ

ഐ

ഗവൺമെന്റിലേക്ക് ഡിജിറ്റൽ ഇടപാടിലൂടെ അടയ്ക്കുന്ന തുകകൾക്ക് ചാർജ്ജുകൾ ഒഴിവാക്കുക പരാതികൾ പരിഹരിക്കുന്നതിന് ഓൺലൈൻ സംവിധാനങ്ങൾ നടപ്പിൽവരുത്തുക എന്നീ നിർദ്ദേശങ്ങളും നിലേക്കനി കമ്മറ്റി മുന്നോട്ടുവച്ചിട്ടുണ്ട്

അത്യുഷ്ണം നിലനിൽക്കുന്ന സാഹചരൃത്തിൽ ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിൽ കഴിയണമെന്നും ഒഴിവാക്കുന്നു്കാത്ത സാഹചര്യങ്ങളിൽ മാത്രമേ വീടിന് പുറത്തിറങ്ങാവൂ എന്നും മുന്നറിയിപ്പിൽ പറയുന്നു കുട ഉപയോഗിക്കുക അയഞ്ഞതും ഇളം നിറത്തിലുള്ളതുമായ കോട്ടൻ വസ്ത്രങ്ങൾ ധരിക്കുക തണൽ പ്രദേശങ്ങളിൽ വിശ്രമിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്

നാളെ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും

ജി വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം